ഡി എഫ് യു ഡി എഫ് എൻ

എ മുന്നണികളുടെ വാശിയേറിയ പോരാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി സംസ്ഥാനത്തേക്ക് ദേശീയ നേതാക്കളും എത്തും വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം കഴിഞ്ഞ രണ്ട് ദിവസമായി മന്ദഗതിയിലായിരുന്ന പത്രികാ സമർപ്പണം ഊർജ്ജിതമായി കോൺഗ്രസ് ആറും ബിജെപി മൂന്നും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് വൈകാതെ ഇക്കാരൃത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്

ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്തീം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി മത്സരിക്കും

കളമശ്ശേരി സീറ്റുമായി ബന്ധപ്പെട്ട് ലീഗിൽ അസ്വാര്സ്യങ്ങൾ ഇല്ലെന്നും നേതാക്കൾ അവകാശപ്പെട്ടു

ഡി

പ്രതിഭ കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും വിസ്മയം തീർത്ത കലാകാരനായിരുന്നു ചേമഞ്ചേരിയെന്ന് മുഖൃമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു